ജലീൽ ത ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള നിലവിൽ ചാമ്പ്യന്മാരായ ചെന്നൈ സിറ്റി എഫ് സിയെ പരാജയപ്പെടുത്തി വാർത്തകൾ വിശദമായി സമയം പാഴാക്കാതെ രാജ്യം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കുതിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു എൻ ഡി എ ഗവൺമെന്റ് കഴിഞ്ഞ എട്ടുമാസങ്ങളിലായി എടുത്ത നൂറോളം തീരുമാനങ്ങൾ അഭൂതപൂർവ്വമാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ന്യൂഡൽഹിയിൽ സ്വകാര്യ ടി വി ചാനൽ സംഘടിപ്പിച്ച ഇന്ത്യ ആക്ഷൻ പ്ലാൻ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി

കേന്ദ്ര ബജറ്റ് അഞ്ചു ലക്ഷം കോടി ഡോളർ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യം നേടാൻ സഹായകമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

നാലു പേരാണ് ജില്ലയിലെ ആശുപത്രികളിൽ ഐസൊലേഷൻ വാർഡുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്

വൈറസ് ബാധ ഏത് ദിശയിലേക്കും നീങ്ങാമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ജനീവയിൽ പറഞ്ഞു ദരദ ഇന്ന് ലോക റേഡിയോ ദിനം

റേഡിയോയും വൈവിധ്യങ്ങളും എന്നതാണ് ഈ വർഷത്തെ റേഡിയോ ദിന സന്ദേശം

രുദ റേഡിയോ മെക്കാനിക്കും വയനാട് ജില്ലാ റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ടി

സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ രാവിലെ നിർവഹിക്കും പെട്രോനെറ്റ് എൽ എൻ ജി ലിമിറ്റഡും സംസ്ഥാന തീരദേശ വികസന കോർപറേഷനും സംയുക്തമായാണ് സൈക്കിളുകൾ വിതരണം ചെയ്യുന്നത് ദേഴ കൊച്ചി പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ ചോദ്യം ചെയ്യുന്നതിന് ഹാജരാകാൻ മുൻ മന്ത്രി വി

ഇബ്രാഹിംകുഞ്ഞിന് വിജിലൻസ് നോട്ടീസ് നൽകി തിരുവനന്തപുരം പൂജപ്പുരയിലെ ഓഫീസിൽ ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട രേഖകളുടെ പരിശോധന വിജിലൻസ് പൂർത്തിയാക്കി രദേശ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അസാപും സംയുക്തമായി സംഘടിപ്പിക്കുന്ന റീബൂട്ട് കേരള ഹാക്കത്തോൺ നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കുമെന്ന് മന്ത്രി ഡോക്ടർ കെ

കൂടുതൽ വിവരങ്ങളുമായി ജി

ഏഴും എട്ടും ഹാക്കത്തോണുകൾ മാർച്ച് ആറു മുതൽ എട്ടുവരെ അങ്കമാലി ഫിസാറ്റിലും കാസർകോട് പെരിയ ഗവൺമെന്റ് പോളിടെക്നിക്ക് കോളേജിലും സംഘടിപ്പിക്കും

ഇന്നലെ കോയമ്പത്തൂരിൽ നടന്ന എവേ മത്സരത്തിൽ നിലവിലെ ചാംപ്യൻമാരായ ചെന്നൈ സിറ്റി എഫ് സി യെ ഏകപക്ഷീയമായ ഒരുഗോളിനാണ് ഗോകുലം പരാജയപ്പെടുത്തിയത് രുദ ഗോവയിൽ ഐ എസ് എൽ ഫുട്ബോളിൽ എഫ് സി ഗോവയ്ക്ക് തകർപ്പൻ ജയം

ഫുട്ബോൾ മത്സരത്തിനിടെ മരിച്ച കായികതാരം ധനരാജിന്റെ ഭാര്യയ്ക്ക് സഹകരണ വകുപ്പിൽ ജോലി നൽകുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു

ദേദ സംസ്ഥാനത്തെ സർവ്വെ റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ വിവര സാങ്കേതിക വിദ്യ അധിഷ്ഠിതമാക്കി നടപ്പാക്കുന്നതിനു മുന്നോടിയായി ദേശീയ സെമിനാർ തിരുവനന്തപുരത്ത് തുടങ്ങി രണ്ടു ദിവസത്തെ സെമിനാർ മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു ഭൂരേഖ സംബന്ധിച്ച വിഷയങ്ങളിൽ ജനങ്ങൾക്ക് ഏറെ ആശങ്കയുണ്ടെന്നും സർവ്വെ നടപടികൾ കൂടുതൽ സുതാര്യമാകണമെന്നും മന്ത്രി പറഞ്ഞു ദുദ പൊലീസിലെ അഴിമതി സംബന്ധിച്ച സി എ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡി ജി പി ലോക്നാഥ് ബെഹ്റയെ ഉടൻ സ്ഥാനത്തുനിന്ന് മാറ്റി വിശ്വാസയോഗ്യമായ ഏജൻസി അന്വേഷിക്കണമെന്ന് കെ

പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു ദേശീയ സുരക്ഷയെപ്പോലും ബാധിക്കുന്ന ക്രമക്കേടാണ് പൊലീസിൽ ഉണ്ടായതെന്നും ഇതേകുറിച്ച് കേന്ദ്ര ഏജൻസികൾ ഉടൻ അന്വേഷണം ആരംഭിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു എൽ ഡി എഫ് ഗവൺമെന്റ് കഴിഞ്ഞ നാലു വർഷമായി നടത്തിയ അഴിമതിയുടെ എല്ലാ തെളിവുകളും കോൺഗ്രസ് ശേഖരിച്ചുവരികയാണെന്ന് മുല്ലപ്പള്ളി അറിയിച്ചു രുദ ആഭ്യന്തരവകുപ്പിനെ സംബന്ധിച്ച സി എ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എൻ ഐ എ അന്വേഷിക്കണമെന്നും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിഷയം മുഖ്യമന്ത്രി ആഭ്യന്തരവകുപ്പ് ഒഴിയണമെന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു സിഎജി റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു

ജി റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണെന്നും വിഷയം കേന്ദ്ര ഏജൻസിയോ സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിലോ അന്വേഷിക്കണമെന്നും മുസ്ലീം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു

എഫ് ഗവൺമെന്റ് അധികാരത്തിലെത്തിയതോടെ വീഴ്ചകൾ ആവർത്തിക്കുന്ന സ്ഥിതിയാണെന്നും അദ്ദേഹം പറഞ്ഞു രദേശ കോഴിക്കോട് നാഷണൽ സ്കിൽ ട്രെയിനേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് എം കെ രാഘവൻ എം പി കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി മഹേന്ദ്രനാഥ് പാണ്ഡെയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി

തിരുവനന്തപുരം ഡിവിഷണൽ റയിൽവേ മാനേജരും ഉന്നത ഉദ്യോഗസ്ഥരുമായുളള യോഗത്തിന് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ദുദ മലയാളത്തിന്റെ പ്രിയകവി ഒ

കുറുപ്പ് വിടവാങ്ങിയിട്ട് ഇന്ന് നാല് വർഷം ഭാവഗീതങ്ങളിലൂടെയും സരള സുന്ദര കവിതകളിലൂടെയും ജനപ്രിയ നാടക ചലച്ചിത്രഗാനങ്ങളിലൂടെയും മലയാളത്തിനും മലയാളിക്കും പുണ്യം പകർന്ന കവിയുടെ ചരമവാർഷികം ജന്മനാടായ കൊല്ലം ചവറയിൽ വിവിധ അനുസ്മരണ പരിപാടികളോടെ ആചരിക്കും ദേദ കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിന്റെ മലയോര മേഖലയായ മേലുകാവ് പഞ്ചായത്തിലെ മങ്കൊമ്പ് മേഖലയിൽ പടർന്നു പിടിച്ച തീയിൽ ഏക്കർ കണക്കിന് കൃഷി കത്തിനശിച്ചു രണ്ടു ദിവസം നീണ്ട അഗ്നിബാധയിൽ റബറും തെങ്ങും കാപ്പിയും കുരുമുളകും വാഴയും അടക്കം കൃഷികളാണ് കത്തി നശിച്ചത്